ഇന്ത്യ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും പ്രകോപനമുണ്ടാക്കിയാൽ ഉചിതമായ തിരിച്ചടി നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും പ്പൂര്യമാധികാരവും സുപ്രധാനമാണെന്നും പ്രധാന്ദ്മൃത്തി

ഇന്ത്യ ചൈന അതിർത്തിയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാനായി പ്രധാനമുന്തി മീറ്റ്നാൾ സർവ്വകക്ഷിയോഗം വിളിച്ചു

വഖഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സി ക്ക് വിടാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം

രാഷ്ട്രത്തിന്റെ അഖണ്ഡത യെയും പരമാധികാരത്തെയും വെല്ലുവിളിക്കുന്ന വർക്ക് ഉചിതമായ തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി നടത്തിയ രണ്ടാം ദിന ചർച്ചകൾക്ക് മുൻപായാണ് പ്രധാനമന്ത്രി ഇത്തര ത്തിൽ പ്രതികരിച്ചത് ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്ന രാഷ്ട്ര മാണെന്നും അയൽരാജ്യങ്ങളുമായി സമവായത്തിലെ ത്താൻ നിരന്തരം ശ്രമിക്കാറുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു

സർക്കുർ മുൻകൂട്ടി നടത്തിയ തയ്യാറെടുപ്പാണ് രാജൃത്ത് രോഗ്ലമുക്ത് നേടുന്നവരുടെ എണ്ണം വർദ്ധിക്കാൻ ഇടയാക്കിയതെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞു സാധാരണക്കാർിയു ജനങ്ങൾ പുലർത്തിയ അച്ചടക്ക ത്തിലൂടെയാണ് രാജ്യത്ത് ്രോഗനിയന്ത്രണം സാധ്യമായതെന്നും അദ്ദേഹം വ്യക്തമാക്കി സർവകക്ഷിയോഗം ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തല ത്തിൽ സർവകക്ഷിയോഗം വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വെള്ളിയാഴ്ച വൈകുന്നേരം നടക്കുന്ന വിർച്ചൽ യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ അധ്യക്ഷന്മാർ പങ്കെടുക്കും ചൈനയുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലെ സ്ഥിതിഗതി കൾ യോഗത്തിൽ വിലയിരുത്തും

സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് കരസേനാ മേധാവി ജനറൽ എം

നരവണേ നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിങ്ങ് വ്യോമസേനാ മേധാവി ചീഫ് മാർഷൽ ആർ

എസ് ഭദൌരിയ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു

മൂന്ന് പേർക്ക് സമ്പർക്കത്തിലൂടെ യാണ് രോഗബാധ

അതിർത്തിയിൽ ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാർക്ക് മുഖ്യമന്ത്രി ആദരാഞ്ജലികൾ അർപ്പിച്ചു

തിരുവനന്തപുരത്ത് നടന്ന ബോർഡ് യോഗത്തിന് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ

എസ് ആർ

സംസ്ഥാന വഖഫ് ബോർഡ് ജീവനക്കാരുടെ നിയമനങ്ങൾ കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷന് വിടുന്നതിനുള്ള ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി ജലവിഭവ വകുപ്പ് സെക്രട്ടറി ഡോ

അശോകിനെ സപ്ലൈകോ എംഡിയായി നിയമിക്കുവാനും നിലവിൽ സപ്ലൈകോ എംഡിയായ പി

അലി അസ്ഗർ പാഷയെ സപ്സൈകോ ജനറൽ മാനേജറായി നിയമിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു

ഇവർക്ക് പഠിക്കുന്നതിനുള്ള സൌകൃപ്പങ്ങൾ എത്തിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്ഗ്വൺമെന്റ് ബോധിപ്പിച്ചു വിദ്യാർത്ഥികൾക്ക് സൌകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യ പ്പെട്ടു കൊണ്ടുള്ള ക്ർജ്ജീയിലാണ് ഗവൺമെന്റ് നിലപാട് അറിയിച്ചത്

അതിനാൽ അമിത ചാർജ്ജ് ഈടാക്കുന്നുവെന്ന ഹർജിക്കാരുടെ വാദം അടിസ്ഥാന രഹിതമാണെന്ന് ബോർഡ് കോടതിയെ അറിയിച്ചു ഗാർഹിക ഉപഭോക്താക്കൾക്ക് പ്രതിമാസ ബിൽ അപ്രായോഗികമാണെന്നും ബോർഡ് പറഞ്ഞു വർദ്ധിപ്പിച്ച ചാർജ്ജ് ഈടാക്കുന്നതുമായി ബന്ധ പ്പെട്ട സ്വകാര്യ ഹർജിക്കുള്ള മറുപടിയായി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ബോർഡിന്റെ ഈ വെളിപ്പെടുത്തൽ

ഇബ്രാഹിം കുഞ്ഞിനെതിരെയുള്ള കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ പരാതി പിൻവലിപ്പിക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം കുഞ്ഞിന്റേയും മകന്റേയും മറ്റ് നേതാക്കളുടേയും ക്രമാഴികൾ ഹാജരാക്കാൻ വിജിലൻസിന് ഹൈക്കോടതി നിർദ്ദേശ്ശാ ്നൽകി

ഇത് സംബന്ധിച്ച് പുറക്കാട് പഞ്ചായത്ത് നൽകിയ സ്റ്റോപ്പ് മെമോ അനുസരിച്ച് ഹൈക്കോടതി കെ

കേസ് അടുത്ത ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും

മന്ത്രിയുടെ ആരോഗൃനില മെച്ചപ്പെട്ട സാഹചരൃത്തിൽ ഇന്ന് ചേർന്ന മെഡിക്കൽ ബോർഡ് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു

ഇന്ന് പ്രസ്ട്രിദ്ധീക്രിച്ച വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ലാത്തവർക്ക് പ്പേര് ചേർക്കുന്നതിന് തിരഞ്ഞെടുപ്പിനു മുമ്പ് തന്നെ രണ്ട് അവസരങ്ങൾ കൂടി നൽകും ഒക്ടോബർ അവസാന മാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ബാലാവകാശ കമ്മീഷൻ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുൻവർഷത്തേതിൽ നിന്ന് അധികം ഫീസ് കുട്ടികളിൽ നിന്ന് ഈടാക്കാൻ പാടില്ലെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഉത്തരവായി ഈടാക്കുന്ന ഫീസ് മാസാടിസ്ഥാനത്തിലോ മൂന്നോ നാലോ ഗഡു ക്കളായോ ഒടുക്കാൻ രക്ഷാകർത്താക്കളെ അനുവദിക്കുകയും വേണം

ഇതിൽ അഞ്ച് ലക്ഷം രൂപ ഉടൻ നൽകുമെന്നും മന്ത്രി അറിയിച്ചു

ആകാശവാണി ആലപ്പുഴ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്

മാഹി പുഴയിലെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തി നിർമ്മിച്ച ബണ്ടുകൾ പ്രളയത്തിന് കാരണമായതായി കാണിച്ച് അഴിയൂർ ഗ്രാമപഞ്ചായത്ത് ജില്ലാ കലക്ടർക്ക് കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി

ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിന്റിധി ആന്റണി മുനിയറ തയ്യാറാക്കിയ റിപ്പോർട്ട്

കൃഷിവകുപ്പു മന്ത്രി വി

കൃഷി വകുപ്പും നഗരസഭയും സ്വസ്തി ഫൌണ്ടേഷനും സംയുക്തമായാണ് രാജ്ഭവനിൽ പച്ചക്കറി കൃഷി നടത്തുന്നത്

മാതൃവന്ദന സോഫ്റ്റ് വെയറിൽ രേഖപ്പെടുത്തുന്ന പേരിലും മറ്റ് വിവരങ്ങളിലും വൃത്യാസമില്ലാതിരിക്കാനാണ് ആധാർ സ്കാൻ ചെയ്ത് സോഫ്റ്റ് വെയറിൽ ളൂൾപ്പെടുത്തുന്നതിന് എല്ലാ ഐസിഡിഎസുകളിലും ക്യുആർ ക്ടോട്ടിയ്ക്ക് റീഡർ സ്ഥാപിക്കുന്നത് കൃത്യമായ വിവരങ്ങൾ കൃുആർപ്പ് കോഡിലൂടെ ശേഖരിക്കാൻ കഴിയുമെന്നതിനാൽ തെറ്റുകൾ കടന്നുകൂടുന്നത് ഒഴിവാക്കാനും കാലതാമസം കൂടാതെ സ്പ്രവർം ലഭ്യമാക്കാനും സാധിക്കും

അയോഗ്യനാക്കി കൂറുമാറ്റ നിരോധന നിയമ പ്രകാരം മലപ്പുറം ജില്ലയിലെ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് അംഗം ടി

നിലവിൽ ഗ്രാമപഞ്ചായത്ത് അംഗമായി തുടരുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേയ്ക്ക് മത്സരിക്കുന്നതിനും ആറ് വർഷത്തേയ്ക്ക് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്

സുൽത്താൻബത്തേരിയിൽ താമസിക്കുന്ന പാലക്കാട് ചിറ്റൂർ സ്വദേശിയായ വിനോദ് എന്ന മുജീബിനാണ് കൽപ്പറ്റയിലെ പോക്സോ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത്

പ്രതിക്കുളള ശിക്ഷ ജഡ്ജി എ

കൊറോണ വ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ഒരു ദിവസമുണ്ടാകുന്ന ഏറ്റവും ഉയർന്ന മരണനിരക്കാണിത്

അമേരിക്കയിൽ ഇതുവരെ ഇരുപത്തിരണ്ടു ലക്ഷത്തില ധികം പേർക്കാണ് രോഗം സ്ഥിരൂീകരിച്ചത്

ബ്രസീൽ കൃഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് രോഗബാധയിൽ അമേരിക്ക്യ്ക്ക് പിന്നിൽ

സ്വർണ്ണ വിലയിൽ വർദ്ധന